പരമേശ്വരന്റെ സംസ്കാരം ഉച്ചുകഴിഞ്ഞ് ആലപ്പുഴ മുഹമ്മയിൽ

പരിപാടിയുടെ ഭാഗമായി ഓരോ സംസ്ഥാനത്തേയും കേന്ദ്ര ഭരണപ്രദേശത്തേയും മറ്റൊരു സംസ്ഥാനവുമായി ബന്ധിപ്പിച്ച് ഇരു സംസ്ഥാനങ്ങളുടേയും ഭാഷ സാഹിത്യം സംസ്കാരം ഉത്സവങ്ങൾ എന്നിവ പങ്കുവെയ്ക്കും ഹിമാചൽപ്രദേശും കേരളവും തമ്മിലാണ് സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്നത്

ചൈന ഹോങ്കോങ് വഴികളിലെത്തുന്ന എല്ലാ വിമാന യാത്രക്കാരെയും പ്രാഥമിക പരി ശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട് നേരത്തേ കൊറോണ സ്ഥിരീക രിച്ച മൂന്നു പേർക്കൊഴികെ കേരളത്തിൽ ആർക്കും രോഗ ബാധയി ല്ലെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു

കൊറോണാ വൈറസ് ബാധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർഥിനിയുടെ ഏറ്റവും ഒടുവിലെ പരിശോധനാഫലം നെഗറ്റീവാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു അടുത്ത ഫലം കൂടി നെഗറ്റീവായാൽ തുടർ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുമെന്നും മന്ത്രി പറ ഞ്ഞു കാസർകോട് ജില്ലയിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ തൃപ്തി കരമാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ

ഇവരിൽ രണ്ടു പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലു മാണ്

അംഗൻവാടി ആശാ പ്രവർത്തകർ മരുന്ന് വിത രണം ചെയ്യും

ഇന്നലെ അന്തരിച്ച ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറും സംഘപരി വാർ സൈദ്ധാന്തികനുമായ പി പരമേശ്വരന്റെ ഭൌതിക ശരീരം ഉച്ച കഴിഞ്ഞ് ജന്മനാടായ ആലപ്പുഴ മുഹമ്മയിൽ ഔദ്യോഗിക ബഹുമ തികളോടെ സംസ്കരിക്കും തിരുവനന്തപുരത്ത് സംസ്കൃതി ഭവനിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഭൌതിക ശരീരം അൽപസമയ ത്തിനകം പൊതുദർശനത്തിനായി പി ജെ ടി ഹാളിലേക്ക് മാറ്റും

സ്വകാര്യ ആയുർവേദ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തി ലിരിക്കെ തൃശൂർ മായന്നൂരിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു പര മേശ്വർജിയുടെ അന്ത്യം

പരമേശ്വരന് കേരളം അർഹമായ അംഗീകാരം നൽകിയോ എന്ന് ചിന്തി ക്കണമെന്ന് ബി ഡി

എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു

എസ് എസ് ആശയങ്ങളെ ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ സാഹിത്യ സാംസ്കാരിക പ്രമുഖർ പി പരമേശ്വരനെ തമസ്കരിക്കാൻ ശ്രമിച്ചതായി അനുശോചന സന്ദേശത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു ജ്ഞാനപീഠ ജേതാവ് അക്കിത്തതിന് ജന്മനാട് ഒരുക്കുന്ന ആദരം അക്കിത്തം അച്യുതം പരിപാടി രാവിലെ പാലക്കാട് കുമരനെല്ലൂർ ഗവ

മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ ചടങ്ങിൽ മുഖ്യാതി ഥിയായി പങ്കെടുക്കും

അധ്യാ പക നിയമന നിയന്ത്രണം ജീവനക്കാരുടെ പുനർവിന്യാസം തുട ങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്

ലോസ് ആഞ്ചൽസിലെ ഡോൽബി തിയേറ്ററിലാണ് ചടങ്ങ്

പോചസ്ട്രോമിൽ മൂന്ന് വിക്കറ്റിനാണ് ഇന്ത്യയുടെ പരാജയം

പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാനതല പഠനോത്സവത്തിന് ഇന്ന് തുടക്കമാകും പൊതു വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അറിവും കഴിവും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരമൊരു ക്കുന്ന പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും നഴ്സറി മുതൽ ഒമ്പതുവരെ ക്സാസുകളിലെ കുട്ടികൾ ഇതിൽ പങ്കെടുക്കും കാലിക്കറ്റ് സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ ആഘോഷങ്ങൾ ഇന്ന് തുടങ്ങും ഉച്ചകഴിഞ്ഞ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും മെയ് അവസാനം വരെ നീളുന്നപരിപാ ടികളാണ് സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായിസംഘടിപ്പിക്കുന്നത്

പി രാമകൃഷ്ണൻ അറിയിച്ചു കോഴിക്കോട് മൂടാടി വീമംഗലം യു പി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ലാഭനഷ്ടങ്ങളുടെ തോതനുസരിച്ചല്ല വിദ്യാലയ ങ്ങളെ പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൊയി ലാണ്ടി പെരുവട്ടൂർ എൽ

തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളുടെ ഉയർച്ചക്ക് സംസ്ഥാന് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് മുസ്ലീം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലി ക്കുട്ടി കുറ്റപ്പെടുത്തി

കോഴിക്കോട്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുഞ്ഞാലി ക്കുട്ടി മരടിൽ പൊളിച്ചു നീക്കിയ ഫ്ളാറ്റുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യു ന്നതിന്റെ പുരോഗതി സുപ്രീംകോടതി ഇന്ന് പരിശോധിക്കും മാലിന്യ നീക്കത്തേയും നഷ്ട പരിഹാരത്തേയും സംബന്ധിച്ച സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ട് കോടതി പരിഗണിക്കും കൂടത്തായി കൊലപാതക പരമ്പരയിലെ അവസാന കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും ജോളി ആദൃം കൊലപ്പെടുത്തിയ പൊന്നാമറ്റം അന്നമ്മ തോമസിന്റെ കേസിലാണ് കുറ്റപത്രം താമരശേരി ഒന്നാം ക്സാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കോഴഞ്ചേരി പമ്പ മണപ്പുറത്ത് ഇന്നലെ ആരംഭിച്ച മാരാമൺ കൺവെൻഷ നിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കൻ വനിതാ ബിഷപ്പ് ഡോ കെയ് മേരി ഗോഡ്സ്വർത്തി പ്രഭാഷണം നടത്തും അന്യരിൽ ദൈവത്തെ കാണ ണമെന്ന് ഇന്നലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഡോ ജോ സഫ് മാർത്തോമാ മെത്രോ പൊലീത്ത ഉദ്ബോധിപ്പിച്ചു

തൈപറമ്പിൽ വിനോദ് ഭാര്യ രമ പ്ലസ്ടു വിദ്യാർഥികളായ നയന നീരജ് എന്നിവരാണ് മരിച്ചത്

ബന്ധുവീട്ടിലെത്തിയ നാഗർകോവിൽ സ്വദേശി സെൽവരാജും ശരവണൻ വിഗ്നേഷ് എന്നിവരുമാണ് മരിച്ചത് കഴിഞ്ഞ രണ്ടു സംസ്ഥാന ബജറ്റുകളിലും തീവ്രവൈകലൃം നേരിടുന്നവ രുടെ പെൻഷൻ വർധിപ്പിക്കാത്തതിൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈന്റ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ട് ഉചിതമായി വർധ്യിപ്പിക്കണമെന്ന് അവർ ആവ ശ്യപ്പെട്ടു സാമ്പ്രദായിക രീതിക്ക് മാറ്റം വരുത്തി പഠനം ക്സാസ്റൂമുകളുടെ പുറ ത്തേക്ക് വരണമെന്ന് മന്ത്രി സി

തൃശൂർ ്ബ്ലാങ്ങാട് ഗവ ഫിഷറീസ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ ഹൈടെക് പരിഷ്കാരങ്ങൾ ജന ങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞതായി മന്ത്രി ഇ പി ജയരാജൻ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികളെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളു കളിൽ ചേർക്കാൻ രക്ഷിതാക്കൾ കാണിക്കുന്ന താൽപര്യം ഇതിനു തെളിവാണെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂരിലെ മാലൂർ പനമ്പറ്റയിൽ ന്യൂ യു പി സ്കൂൾ പുതിയ കെട്ടിടവും വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി